ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡൻസ് കളർ അവാർഡ് രാഷ്ട്രപതി സമ്മാ നിക്കും സംസ്ഥാനത്ത് വീടുകളിലേക്ക് പ്രകൃതി വാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര മന്ത്രി ധർമേന്ദ്ര പ്രധാൻ

കേരളത്തെ അടുത്ത വർഷത്തോടെ ആന്റിബയോട്ടിക് സാക്ഷര താ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി കെ കെ ശൈലജ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല പൂർണ്ണ സജ്ജമായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത മത്സരത്തിൽ ഇന്ത്യയും അ ഫ്ഗാനിസ്ഥാനും സമനിലയിൽ പിരിഞ്ഞു ങ്ങ ൽ ഢ ൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച വൈകീട്ട് കണ്ണൂരിലെത്തും ബുധനാഴ്ച രാവിലെ ഏഴി മല നാവിക അക്കാദമിക്ക് രാഷ്ട്രപതി പ്രസിഡൻസ് കളർ അവാർഡ് രാഷ്ട്രപതി സമ്മാനിക്കും മികച്ച സേവനങ്ങൾ പരിഗ ണിച്ച് ഒരു സൈനിക കേന്ദ്രത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് കളർ അവാർഡ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നാവിക സേനാ കേഡറ്റുമാരുടെ പരേഡിനും രാഷ്ട്രപതി സാക്ഷ്യംവഹിക്കും തുടർന്ന് പ്രമുഖരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും ഉച്ച യോടെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചുപോകും സംസ്ഥാനത്ത് വീടുകളിലേക്ക് പ്രകൃതി വാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമേന്ദ്ര പ്രധാൻ അറിയിച്ചു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയി ലാണ് അദ്ദേഹം ഈ ഉറപ്പു നൽകിയത് സിറ്റി ഗ്യാസ് പദ്ധതി പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടുതൽ സി

ജി സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടിയെടുക്കു മെന്നും ധർമേന്ദ്ര പ്രധാൻ പറഞ്ഞു പ്രകൃതി വാതകം ഉപയോഗിക്കുന്ന ബസുകൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയു ടെയും സംയുക്ത സംരംഭമായ കോഴിക്കോട് സെയിൽ എസ്

എൽ കേരള ലിമിറ്റഡിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സെയിലിന്റെ റീട്ടെയിൽ ശൃംഖല സംസ്ഥാനത്ത് സ്ഥാപിക്കണ മെന്ന് കേന്ദ്രമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഫാക്റ്റിന്റെ ഭൂമി കൂടി ഉപയോഗിച്ച് കൊച്ചിയിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമി ക്കൽ പാർക്കിന്റെ നടപടി വേഗത്തിലാക്കണമെന്നും മുഖൃമന്ത്രി പറഞ്ഞു

എൽ സ്വകാര്യവത്കരിക്കാൻ കേന്ദ്രഗവൺമെന്റെടുത്ത തീരു മാനം പുനപരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇരുമ്പ് ഉരുക്ക് മേഖലയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി രാജ്യത്ത് ലോകനിലവാരത്തിൽ സൌകര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ പറഞ്ഞു

കേസ് കോടതി ഇന്ന് പരിഗണി ക്കാനിരിക്കെ ദേശീയപാത അതോറിറ്റി ചീഫ് എഞ്ചിനിയറാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് തലശേരി ബാവലി റോഡും കാട്ടി ക്കുളം തോൽപ്പെട്ടി ജില്ലാ റോഡുകളും സംസ്ഥാന പാതകളാ ക്കിയും കേരള കർണ്ണാടക ഗവൺമെന്റുകൾ ആവശ്യമായ ഭൂമി ഏറ്റെടുത്തും ബദൽപാത നിർമ്മിക്കാൻ കഴിയുമെന്നാണ് സത്യ വാങ്മൂലത്തിൽ പറയുന്നത് കേരളത്തെ അടുത്ത വർഷത്തോടെ ആന്റിബ്യോട്ടിക് സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റാൻ മന്ത്രി കെ

ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപ യോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങളെ ബോധൃ പ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ ഇതിന്റെ ദോഷ വശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു

ആന്റി ബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മനുഷ്യരാശി യുടെ ഭാവിക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കു കയാണെന്നും മന്ത്രി പറഞ്ഞു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല പൂർണ്ണ സജ്ജമാ യതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതായും മന്ത്രി തിരുവനന്ത പുരത്ത് അറിയിച്ചു

തീർത്ഥാടകർക്കായി പമ്പ മുതൽ മരക്കൂട്ടം വരെ ഓക്സിജൻ പാർലർ സൌകര്യമുൾപ്പെടെ പത്ത് അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല നട നാളെ വൈകീട്ട് തുറക്കും സുപ്രിംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ നടപടികളാണ് പൊലീസ് ഏർപ്പെടുത്തിയി രിക്കുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കണക്കിലെടുത്ത് ചെന്നൈ തിരു വനന്തപുരം ചെന്നൈ നിസാമുദ്ധീൻ തിരുവനന്തപുരം നിസാ മുദ്ധീൻ പ്രതിവാര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ രണ്ട് മിനിറ്റ് താൽക്കാലിക സ്റ്റോപ്പ് അനു വദിച്ചു ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി സംസ്ഥാന ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരാണെന്ന് കെ

സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം

വിശ്വാസി സമൂഹത്തിനോട് ബി

പിക്കും സംഘപ രിവാറിനും പ്രതിബദ്ധതയില്ലെന്നും ശബരിമലയെ അനാവശ്യ പ്രചാരണായുധമാക്കി പാർട്ടി വളർത്താനാണ് ബി

സുപ്രീംകോടതി ഭരണഘടനാ ബഞ്ചിന്റെ വിധി ഭക്തർക്ക് സന്തോഷം നൽകുന്നതാണെന്ന് ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ

ശശികല കോഴിക്കോട്ട് പറഞ്ഞു ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശബരിമല കർമ്മ സമിതി ഉടൻ യോഗം ചേരുമെന്നും അവർ പറഞ്ഞു അയോധ്യ വിഷയത്തിൽ സുപ്രീംകോടതി വിധിയിലെ ആശങ്കകളും അവ്യക്തതകളും സമൂഹത്തിന് മുമ്പിൽ സി

ഐഎം വിശദീകരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എഫ് സമ്പൂർണ്ണ നേതൃയോഗം നെയ്യാർഡാമിലെ രാജീവ്ഗാന്ധി സെന്ററിൽ രാവിലെ ആരംഭിക്കും ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാ ജയം വിശദമായി പരിശോധിക്കുന്ന യോഗം തിരുത്തൽ നടപടി കൾ തീരുമാനിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാ നിസ്ഥാനും സമനിലയിൽ പിരിഞ്ഞു താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന കളിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി

കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ സമാപിച്ച ദക്ഷിണേന്ത്യാ അന്തർസർവകലാശാല വനിതാ ഹാന്റ് ബാൾ ചാംപ്യൻഷിപ്പിൽ ആതിഥേയരായ കാലിക്കറ്റ് സർവകലാശാല ചാംപ്യൻമാരായി സെമിഫൈനൽ ലീഗ് റൌണ്ടിലെ മൂന്ന് മത്സരങ്ങളിൽ തോൽവിയറിയാതെ ഒമ്പത് പോയിന്റ് നേടിയാണ് കാലിക്കറ്റ് ട ചാംപ്യൻമാരായത് രണ്ട് വിജയവുമായി ആറ് പോയിന്റുമായി പെരിയാർ സർവകലാശാല രണ്ടാംസ്ഥാനവും ഒരു ജയവുമായി മൂന്ന് പോയിന്റ്നേടി എം ജി സർവകലാശാല മൂന്നാംസ്ഥാനവും നേടി

ചൊവ്വാഴ്ച സ്മാപിക്കും കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ സമാപിച്ച മൽപ്പുറം റവന്യൂ ജില്ലാ കായികമേളയിൽ എടപ്പാൾ ഉപജില്ല ജേതാക്കളായി മങ്കട രണ്ടാമതെത്തി തിരൂർ ഉപജില്ലക്കാണ് മൂന്നാം സ്ഥാനം

കോഴിക്കോട് റവന്യൂജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് ആരംഭിക്കും

സ്റ്റേജ്മത്സര ങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കും കാഴ്ചപരിമിതരുടെ വിദ്യാലയങ്ങളിലെ അക്കാദമികവും ഭരണപരവു മായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാക്കേജ് തയാറാക്കുമെന്ന് മന്ത്രി സി

ശിശുദിനത്തോടനുബന്ധിച്ച് വഴു തക്കാട് ഗവ അന്ധ വിദ്യാലയത്തിൽ തുടങ്ങിയ അയൽപക്ക സുഹൃത്ത് വിദ്യാലയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് പന്തീരാങ്കാവ് യു എ പി എ കേസിൽ വിദ്യാർഥികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് കാലയളവിന് ഒപ്പം ഇരുവരുടേയും കസ്റ്റഡികാലാവധിയും ഇന്ന് അവസാനിക്കുന്ന സാഹചരൃത്തിലാണ് കോടതിയിൽ ഹാജരാക്കു ന്നത് ചെങ്ങന്നൂർ വെൺമണിയിൽ വൃദ്ധ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ കേസിൽ വിശാഖപട്ടണത്തു അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശി കളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജുവൽഹസ്സൻ ലംബു ഹസ്സൻ എന്നിവരാണ് ആലുംമൂട്ടിൽ ചെറിയാനെയും ഭാര്യ ലില്ലി യെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് ദമ്പതികൾ തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ ജോലിക്കെത്തിയ ഇവർ കവർച്ച നടത്താനാണ് കൊല നടത്തിയതെന്ന് പൊലീസ് പറഞ്ഞു

മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിൽ തൃശുർ മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ മധ്യവയസ്കൻ തലയ്ക്ക് അടിയേറ്റ് മരിച്ചു

സുഹൃത്തായ നാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു

കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച മൂന്നു കിലോയോളം സ്വർണ്ണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി മല പ്പുറം വണ്ടൂർ സ്വദേശി നിയാസ് കർണാടക ബഡ്കൽ സ്വദേശി അഹമ്മദ് ഇർഷാദ് കോഴിക്കോട് കൊടുവള്ളിയിലെ മുഹമ്മദ് ഷഫീഖ് എന്നിവർ കസ്റ്റംസ് പിടിയിലായി ദ്ര വയനാട് ജില്ലയിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ആരോഗ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ലോകാരോഗ്യ സംഘടനയുടെ ജോയിന്റ് മോണിറ്ററിംഗ് മിഷന്റെ അഭിനന്ദനം ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഫീൽഡ്തല പരിശോധനയ്ക്ക് ശേഷം ക്രലക്ടർ ഡോ

എം രാധ പറഞ്ഞു കണ്ണൂരിൽ നടന്ന മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ